വൃക്തമായ മാനദണ്ഡം നിശ്ചയിക്കണമെന്ന് ഗവൺമെന്റിനോട് ഹൈക്കോടത്തി മുൻഗണനാ ക്രമവും നാശനഷ്ടത്തിന്റെ ്വ്യാപ്തിയും കണക്കിലെടുക്കണം

മുപ്പതിനായിരം ക്കോടി രൂപ വേണമെന്ന് ധനമന്ത്രി മൂന്ന് വിധത്തിൽ പണം കണ്ടെത്തുമെന്നും ഡോ തോമസ് ഐസക് പ്രളയബാധിതർക്ക് നൽകുന്ന പതിനായിരം രൂപയുടെ ന് ആശ്ചാസ ധനസഹായ വിതരണം ഉടൻ പൂർത്തിയാക്കണമെന്ന് മന്ത്രിസഭാ ഉപസമിതി എലിപ്പനിയ്ക്കെതിരായ പ്രതിരോധ നടപടികൾ ഊർജ്ജിതമാക്കി

നിലയ്ക്കലിൽ നിന്ന് കെ എസ് ആർ ടി

ബസ്സുകളിൽ ഭക്തരെ പമ്പയിലെത്തിക്കും

മുൻഗണനാക്രമവും നാശനഷ്ടത്തിന്റെ വ്യാപ്തിയും കണക്കിലെടുത്താവണം നഷ്ടപരിഹാരം നിശ്ചയിക്കേണ്ടത്

ഈ തുക മൂന്ന് രീതിയിൽ സമാഹരിക്കാനാണ് ആലോചിക്കുന്നതെന്നും സർവീസ് സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു

അതേസമയം ശമ്പളം സംഭാവന ചെയ്യാൻ ജീവനക്കാരെ ഗവൺമെന്റ് നിർബന്ധിക്കില്ല

ജീവനക്കാർക്ക് ലീവ് സറണ്ടർ ചെയ്ത് പണം നൽകാമെന്നും ധനമന്ത്രി പറഞ്ഞു

എലിപ്പനി പ്രതിരോധിക്കുന്നതിന് ഊർജിതമായ നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി കൂടുതൽ വിവരങ്ങളുമായി റിനൽ ജോസഫ്

കാണാതായവരിൽ ഇനി തിരിച്ചുവരാൻ സാധ്യതയില്ലാത്തവർ ഉണ്ടെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്കും വേഗത്തിൽ നഷ്ടപരിഹാരം ലഭ്യമാക്കും

കുട്ടനാട്ടിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കുന്നതിന് കൂടുതൽ പമ്പുകൾ ഉപയോഗിക്കും

വിവിധ ഏജൻസികൾ നൽകിയ ദുരിതാശ്വാസ സാധനങ്ങളിൽ ബാക്കിയുളളവയുടെ വിതരണം പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിന് കുടുംബശ്രീ യൂണിറ്റുകളെ കൂടി ചുമതലപ്പെടുത്തും പ്രളയം ബാധിച്ച കുടുംബങ്ങളിലെ കുട്ടികൾക്ക് അടിയന്തരമായി നോട്ടുപുസ്തകം ലഭ്യമാക്കും

ബസ് സ്റ്റേഷൻ അംഗനവ്പിട്ടി ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ എലിപ്പറ്റി പ്രിതിരോധ മരുന്നുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്ന പീജ്ഞിക്ക് വയനാട്ടിൽ തുടക്കമായി

എഫ് ഡാം മാനേജ്മെന്റിൽ സർക്കാരിന് ഗുരുതര വീഴ്ച പറ്റിയതാണ് കേരളത്തെ മഹാപ്രളയത്തിൽ മുക്കിയതിന്റെ പ്രധാന കാരണമെന്ന് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ജലവിഭവവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന് മന്ത്രിമാർ ആരോപിച്ചു ് മുൻ മന്ത്രിമാരായ എൻ

പ്രേമചന്ദ്രൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പി

ജോസഫ് എന്നിവർ സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിക്കും ഗവൺമെന്റ് രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ദുരഭിമാനം വെടിഞ്ഞ് സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണമെന്നും കുറ്റക്കാർക്കെതിരേ നടപടി സ്വീകരിക്കണമെന്നും മുൻ മന്ത്രിമാർ ആവശ്യപ്പെട്ടു

മത്സ്യങ്ങളിലാണ് രോഗബാധ ഇത് കണക്കിലെടുത്ത് മത്സ്യ കർഷകർ ജാഗ്രത പുലർത്തണമെന്ന് അനിമൽ ഹ്ലെൽത്ത് ലബോറട്ടറി മേധാവി ഡോ

സ്കൂൾ കലോൽസവ്യ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ശനിയാഴ്ചകൾ പ്രപ്പൃത്തിദിനമായിരിക്കുമെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് ഡി

ഐ

ഈ മാസം ഏഴിന് ഗവൺമെന്റ് അധ്യാപക സംഘടനാ പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഗുണമേന്മ പരിശോധനാസമിതിയുടെ തീരുമാനിക്കുമെന്നും ഡി

പാലക്കാട് ജില്ലയിലെ സ്കൂളുകൾക്ക് മാത്രമാണ് ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കിയത്

തീർത്ഥാടകരുടെ വാഹനങ്ങൾ നിലയ്ക്കൽ വരെ മാത്രമേ അനുവദിക്കൂ ഇവിടെ നിന്ന് പമ്പയിലേക്ക് കെ എസ് ആർ

അന്താരാഷ്ട്രചലച്ചിത്രോൽസവം ടൂറിസ്ം വകുപ്പിന്റെ കലാപരിപാടികൾ യുവജനോൽസവങ്ങൾ എന്നിവയാണ് ഒഴിവാക്കുന്നത്

കെ ശൈലജയുടെ അധ്യക്ഷതയിൽ കണ്ണൂർ ജില്ല ആസൂത്രണ സമിതി ഹാളിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം

എം

ഇത്തരത്തിലുള്ള പരാതികൾ ബന്ധപ്പെട്ട സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുകയാണ് പതിവെന്നും പി

എട്എൽഎക്കെതിരായ പരാതി സംസ്ഥാന ഘടകത്തിന് ക്ടൈമാറ്റിയിട്ടുണ്ടെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യ്യെച്ചൂരിയും അറിയിച്ചു

ശശി തനിക്ക് എതിരായ പീഡന പരാതി ആസൂത്രിതമാണെന്ന് സി

എം ഷൊർണൂർ എം

അന്വേഷണം ഉണ്ടായാൽ നേരിടാൻ തയ്യാറെന്നും എം

ഇതിനിടെ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് സംസ്ഥാന സെക്രട്ടറി എം സ്വരാജ് സംസ്ഥാന പ്രസിഡന്റ് എ

ഷംസീർ എന്നിവർ എകെജി സെന്ററിലെത്തി പാർട്ടി സെക്രട്ടറിയുമായി ചർച്ച നടത്തിയതും ശ്രദ്ധേയമായി

തൃക്കോട്ടൂർ യു

ഇന്ന് രാവിലെയായിരുന്നു അപകടം ട്രെയിൻ വരുന്നത് കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവെ ആയിരുന്നു അപകടം

വിഴിഞ്ഞം മുല്ലൂർ ചരുവിള പുത്തൻവീട്ടിൽ ശ്രീകാന്തിന്റെ ്മൃതദേഹമാണ് ഇന്ന് കണ്ടെത്തിയത് രാവിലെ തീരത്ത് മത്സ്യത്തൊഴിലാളികൾ വലയെറ്റിഞ്ഞുപ്പോൾ മൃതദേഹം വലയിൽ കുടുങ്ങുകയായിരുന്നു ഞായറ്റുഴ്ച് വൈകിട്ട് നാലോടെയാണ് ശ്രീകാന്തിനെ വിഴിഞ്ഞത്തെട് മുല്ലൂർ തീരത്ത് കാണാതായത്

പി കണ്ണൂർ ജില്ലയിലെ കെ

പിയിൽ ഉൾപ്പെടുത്തി നിർമിക്കുന്ന പിലാത്തറപാപ്പിനിശ്ശേരി റോഡിലെ മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ പൊതുമരാമത്ത് മന്ത്രി ് ജി സുധാകരൻ നിർദ്ദേശം നൽകി ഈ മേഖലയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നതിനെ തുടർന്നാണ് മന്ത്രിയുടെ നിർദേശം